ഘട്ടങ്ങളിലേയ്ക്കുള്ള പ്രചാരണം ഉദ്ദർജിതമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദ്ടിയെ ക്ടുറിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ ന് രാഹുൽഗാന്ധി നടത്തിയ് പ്പർാമർശത്തിൽ രാഹുലിനെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെടുന്ന ബി ജെ പി എം പി മീനാക്ഷി ലേഖിയുടെ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വാദം കേൾക്കും

റോയൽസിനെ ആറ് വിക്കറ്റിന് വീഴ്ത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം ഇന്ന് ചെന്നൈയിൽ

സമാധാനപരമായ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാ യി

കോൺഗ്രസ് അധ്യക്ഷൻ രാഹ്ഹുിൽ ഗാന്ധി കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താസ്ക്ക് ശ്രീ തരൂർ കുമ്മനം രാജശേഖരൻ സുരേഷ്ഗോപി കെ

ജെ

ഗോവയിലെ രണ്ട് ലോക്സഭാ സീറ്റു കൾക്കൊപ്പം മൂന്നു നിയമസഭ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെ ടുപ്പും ഇന്ന് നടക്കും

ഇതിൽ മുലായം സിംങ് യാദവ് സന്തോഷ് ഗാംങ്വാ ജയപ്രദ വരുൺ ഗാന്ധി ശിവ് പാൽ യാദവ് അജംഖാൻ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടും

ഏറ്റവും കൂടുതൽ വോട്ടർമാർ മലപ്പുറത്തൂം ്കുറവ് വയനാട്ടിലുമാണ്

പോളിങ് സുഗമമാക്കാനുള്ള സുരക്ഷ ക്രമീക്കൂരണ്ങൾ നിലവിലുള്ളതായി സംസ്ഥാന പോലീസ് മേധാവ്വി ്ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

ചില പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിൽ വീഡിയോ റെക്കോഡിംഗ് സൌകര്യ ങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

രാജ്യത്തുടനീളം നടക്കുന്ന പ്രചാരണ പരിപാടികളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും ഇന്ന് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലുമായി നടക്കുന്ന മൂന്നു റാലികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ഒഡീഷയിൽ കേന്ദ്രപാതാ ബാലാസോർ എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ശ്രീ മോദി പൊതു യോഗങ്ങളെ അഭിസംബോധന ചെയ്യും പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ വൈകുന്നേരം നടക്കുന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് രാജസ്ഥാനിലും മധ്യപ്രദേശിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അഭിസംബോധന ചെയ്യും

ജെ പി എം പി മീനാക്കിച്ചുലേഖി സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വാദ്ം കേൾക്കും രാഹുൽഗാന്ധി ഇന്നലെ തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു രാഷ്ട്രീയ പ്രചാരണ ചൂടിലാണ് താൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്ന് രാഹുൽഗാന്ധി സത്യവാങ്മൂലത്തിൽ പറയുന്നു വിഷയത്തിൽ വിശദീകരണം നൽകാൻ സുപ്രീംകോടതി രാഹുൽഗാന്ധിക്ക് നിർദ്ദേശം നൽകിയിരുന്നു

ജെ പി സ്ഥാനാർത്ഥിയായി ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് മത്സരിക്കും മീനാക്ഷി ലേഖി ന്യൂഡൽഹിയിൽ നിന്ന് വീണ്ടും സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിന്റെ അരവിന്ദർ സിങ് ലൌലിയും ആം ആദ്മി പാർട്ടിയുടെ അദീഷിയുമാണ് ഗംഭീറിന്റെ എതിരാളികൾ ആം ആദ്മി പാർട്ടിയുടെ ബ്രജേഷ് ഗോയലും കോൺഗ്രസിന്റെ അജയ് മാക്കലുമായാണ് മീനാക്ഷി ലേഖിയുടെ പോരാട്ടം നോർത്ത് വെസ്റ്റ് ഡൽഹിയിലെ സ്ഥാനാർത്ഥിയെ ബി ജെ

അവശേഷിക്കുന്ന ഡൽഹിയിലെ ആറു സീറ്റുകളിലേയ്ക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഏഴു സീറ്റുകളിലും ബി ജെ

സൌത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്ന് ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് വിജേന്ദർ സിങ്ങിനെ കോൺഗ്രസ് മത്സരിപ്പിക്കും കോൺഗ്രസ് ഇന്നലെ ഡൽഹിയിൽ നിന്നുള്ള ആറ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

നേരത്തേ ്ഷ്ട്രീഹാറിൽ നടന്ന ഒരു റാലിയിൽ മതത്തിന്റെ പേരിൽ വോട്ടു മ്യോദ്ദിച്ചതിന് കമ്മീഷൻ സിദ്ദുവിന് നോട്ടീസ് അയച്ചിരുന്നു

ശ്രീലങ്കയിലെ പള്ളികളിലും ഹോട്ടലുകളിലും ഞായറാഴ്ച ഉണ്ടായ സ്ഫോടന പരമ്പരകളെ തുടർന്നാണ് തീരുമാനം

പൊതു സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടന്ന ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗത്തിലാണ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താൻ തീരുമാനമായത്

തീവ്രവാദി ആക്രമണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രീലങ്കൻ ഗവൺമെന്റ് അന്താരാഷ്ട്ര സഹായം തേടിയിട്ടുണ്ട് മൂന്ന് ക്രിസ്ത്യൻ പള്ളികളിലും ആഡംബര ഹോട്ടലുകളിലും പാർപ്പിട സമുച്ചയങ്ങളിലുമായുമുണ്ടായ സ്ഫോടന പരമ്പരകൾക്ക് പിന്നിൽ പ്രാദേശിക ഭീകരസംഘടനമായ തൌഹീദ് ജമാ അത്ത് ആണെന്ന് ശ്രീലങ്ക വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നിലെ വിദേശ സഹായം സംബന്ധിച്ച് അന്വേഷിച്ചു വരുന്നതായി ശ്രീലങ്കയിലെ കാബിനറ്റ് മന്ത്രിയും ഗവൺമെന്റ് വക്താവുമായ രാജിത സേനരത്നേ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

യുദ്ധങ്ങളിൽ സാരമായി പരിക്കേറ്റ സൈനി കർക്കുള്ള സംഭാവനയായിട്ടാണ് വീൽചെയറുകൾ നൽകിയത് ഇന്ത്യൻ സേനയും അഫ്ഗാൻ സേനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി രാജ്യരക്ഷാ മന്ത്രാലയം പ്രസ്താവനയിൽ പ്പെട്ടത്തുന്നു അഫ്ഗാൻ സേനാംഗങ്ങൾക്ക് വൈദ്യസുരക്ഷയ്ക്ക് മ്റ്റു ്സഹായങ്ങളും ചെയ്യാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രിപ്സ്താവനയിൽ വ്യക്തമാക്കി

ജെ പി സ്ഥാനാർത്ഥി പ്രഗ്യാസിങ് ഠാക്കൂർ നട ത്തിയ പരാമർശത്തിന്റെ പേരിൽ എഫ് ഐ

അയോധൃയിലെ ബാബറി മസ്ജിദ് പൊളിച്ചതിൽ തനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലെന്നും തന്റെ തീരുമാനത്തിൽ അഭിമാനം ഉണ്ടെ ന്നുമുള്ള പ്രഗ്യാസിങ്ങിന്റെ പരാമർശം വൻ വിവാദങ്ങൾക്ക് ഇട യാക്കി വിഷയത്തിൽ പ്രഗ്യാസിങിന് നോട്ടീസ് അയച്ച ഭോപ്പാൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തൃപ്തികര മായ മറുപടി നൽകാത്തതിനാൽ മാതൃകാപെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് പ്രഗ്യാസിങ് ഠാക്കൂറിനെതിരെ കമലനഗർ പോലീസ് സ്റ്റേഷനിൽ എഫ്

രജിസ്റ്റർ ചെയ്യുകയായിരുന്നു

എൽ ക്രിക്കറ്റിൽ ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ഡെൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ആറു വിക്കറ്റിനു പരാജയപ്പെടുത്തി ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

ഇന്ന് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദ്രാബാദ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നേരിടും

ത്രെക്കൻ ഏഷ്യ മേഖലയിൽ നിന്ന് ബംഗ്ലാദേശ് മാലിദ്വീപും തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്ന് ഇൻഡോ നേഷ്യ മലേഷ്യ ബ്ലൂണോയ്ക്ക് എന്നീ രാജ്യങ്ങളെയുമാണ് ഉൾപ്പെടു ത്താൻ ഉദ്ദേശിക്കുന്നത്